വിഴിഞ്ഞത്തു നിന്ന് കാണാതായ നാല് മത്സ്യത്തൊഴിലാളികളെ തിരിച്ചെത്തിച്ചു തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമായ്ടി തുടരുന്നു

യൂണിവേഴ്സിറ്റി കോളജ് സംഭവത്തിൽ ശക്തമായ നട പടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഡോ കെ ടി ജലീൽ ബാങ്ക് ദേശസാൽക്കരണം ഇന്ത്യാ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ടതാണെന്ന് കെ പിസിസി പ്രസി ഡന്റ് മുല്ലപ്പളി രാമചന്ദ്രൻ നെടുങ്കണ്ടം ക്സ്റ്റഡി മരണത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഇടുക്കിയിലിന്ന് വീണ്ടും തെളിവെടുപ്പ് നടത്തും താമരശ്ശേരി ചുരത്തിൽ കെഎസ്ആർടിസി ബസ്സുകൾ കൂട്ടി യിടിച്ചു ഗ്താഗതം ഭാഗികമായി സ്തംഭിച്ചു

ചൊവ്വാഴ്ചവരെ അതിശക്തമായി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും ജാഗ്രത പാലിക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദേശിച്ചു

തിരച്ചിലിനുപോയ മത്സ്യത്തൊഴിലാളി കളാണ് എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ഉൾക്കടലിൽ കുടുങ്ങിയ ബോട്ട് കണ്ടെത്തിയത് ക്ഷീണിതരായ ഇവരെ ആശു പത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവർ വിഴി ഞ്ഞത്തുനിന്ന് മത്സ്യബന്ധനത്തിനായി പോയത് ശനിയാഴ്ച തിരിച്ചെത്തേണ്ടതായിരുന്നു വ്യോമസേനക്കൊപ്പം മത്സൃത്തൊഴിലാളികളും ഇവർക്കായി തെരച്ചിൽ നടത്തിയിരുന്നു കാസർകോട്ട് ഇന്ന് തീവ്ര മഴയ്ക്ക് സാധൃതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാ പിച്ചു കോഴിക്കോട് വയനാട് ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലക ളിൽ ഇന്ന് ശക്തമായ മഴക്ക് സാധൃതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

കാസർകോഡ് കാഞ്ഞങ്ങാടിന് സമീപം കാര്യങ്കോട് പുഴ കരകവിഞ്ഞ് നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു ഇവരെ സുര ക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്

കുമ്പള റെയിൽവെ സ്റ്റേഷൻ അറ യിൽ പുല്ലൂർ പെരിയ എന്നിവിടങ്ങളിൽ വെളളം കയറി നാശ നഷ്ടങ്ങളുണ്ടായി ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമെന്ന് എറ ണാകുളം ജില്ലാകലക്ടർ അറിയിച്ചു ചാലക്കുടി പുഴയുടെ തീര ങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയി പ്പുണ്ട് എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളായ ചെല്ലാനം കമ്പ നിപ്പടി മേഖലകളിൽ രൂക്ഷമായ കടലാക്രമണമാണ് അനുഭവ പ്പെടുന്നത്

കൊച്ചി നഗരത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ ശക്തമായ മഴ തുടരുന്നു താവക്കര് ഗവൺമെന്റ് യു പി സ്കൂളിലും കണ്ണൂർ ടൌൺ ഗവ ഹ്റ്യർ സെക്കന്ററി സ്കൂളിലും ദുരിതാശ്ചാസ കൃമ്പുകൾ തുറന്നു

താവക്കര പടന്നപ്പാലം പ്രദേശത്തെ കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത് ഫോർട്ട് കൊച്ചിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ യുവാ വിനെ കാണാതായി

ഫയർഫോഴ്സും പൊലീസും മുങ്ങൽ വിദ്ഗ്ധ്രും തെരച്ചിൽ തുടരുന്നു കേരളത്തില്ലെ പ്രെളയ ദുരിതാശ്ചാസത്തിന് ഇനിയും കേന്ദ്ര സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി കെ

ചില വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഘടനകൾ കേരളത്തിന് ഇനിയും സാമ്പത്തിക സഹായം നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെ ന്നും മന്ത്രി പറഞ്ഞു യൂണിവേഴ്സിറ്റി കോളേജ് സംഭവത്തിൽ ഗവണ്മെന്റ് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ അറിയിച്ചു വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് സമരങ്ങൾക്കിറക്കാൻ അനുവദിക്കില്ലെന്നും പ്രശ്നങ്ങൾ ഉണ്ടാ ക്കുന്ന അധ്യാപകരെ സ്ഥലം മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപു രത്ത് സ്വകാര്യ ചാനലിനോട് പറഞ്ഞു

കോളേജിൽ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പരിധി ഏർപ്പെടുത്താൻ നിയമം കൊണ്ടുവരുമെന്നും ജലീൽ അറിയിച്ചു യൂണിവേഴ്സിറ്റി കോളെജ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ കലക്ടറേറ്റിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം

എരഞ്ഞിപ്പാലത്തുനിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകർ പോലിസ് ബാരിക്കേഡ് മറികടന്ന് ് സിവിൽ സ് റ്റേഷൻ കോമ്പൌണ്ടിലേക്ക് കടയ്ക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് മാർച്ച് ൃയൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു

തമി ഴ്നാട്ടിൽ അൻസാറുള്ള ഭീക്രം സംഘടന പ്രവർത്തിക്കുന്നു വെന്ന വിവരത്തെ തുടർന്നാണ് ചെന്നൈ മധുര തിരുനൽവേ ലി രാമനാഥപുരം ജില്ലകൾ കേന്ദ്രീകരിച്ച് റെയ്ഡ്

മുതിർന്ന ബിജെപി നേതാക്കളായ എൽകെ അദാനി എംഎം ജോഷി ഉമാഭാരതി തുടങ്ങിയവർ കേസിൽ പ്രതികളാണ് പ്രത്യേക ജഡ്ജിയുടെ കാലാവധി വിചാരണ പൂർത്തീകരിക്കുന്നതുവരെ നീട്ടിനൽകാൻ ഉത്തർപ്രദേശ് ഗവൺമെന്റിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു

ഇവർ അന്താരാഷ്ട്ര മയക്കുമരുന്നു വിപണിയിൽനിന്ന് ഹെറോയിൻ ഉൾപ്പടെ മയ ക്കുമരുന്നുകൾ കടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന സംഘത്തിൽ പെട്ടവരാണെന്ന് പൊലീസ് അറിയി ച്ചു

അതിർത്തിയിലെ നിലവിലെ സ്ഥിതിയും വിലയി രുത്തും

സി സി ഓഫീസിൽ സ്സ്ലടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോക സാമ്പത്തിക പ്രതിസന്ധിയിൽ ലോകത്തെ ബാങ്കുകൾ തക്കർന്ന്പ്പോൾ അടിത്തറ ശക്തമാക്കിയതുകൊ ണ്ടാണ് ഇന്ത്യൻ ബാങ്കുകൾ അതിനെ അതിജീവിച്ചതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു കർദ്ദിനാൾ ് മാർ ജോർജ് ആലഞ്ചേരിയെ എറണാകുളം അങ്കമാലി് അതിരൂപത ചുമതലയിൽ നിന്ന് മാറ്റണമെന്നതുൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം വൈദികരുടെ ഉപവാസ സമരം മൂന്നാം ദിവസവും തുടരുന്നു സ്ഥിരം സിനഡുമായി ഇന്നലെ നടത്തിയ ചർച്ച തീരുമാനമാകാത്ത സാഹചരൃത്തിലാണ് സമരം തുടരുന്നത് നെടുങ്കണ്ടം കസ്റ്റഡി മരണം അന്വേഷിക്കാൻ ഗവ നിയോ ഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് വീണ്ടും ഇടുക്കിയിലെത്തി തെളിവെടുക്കും പീരുമേട് സബ് ജയിൽ താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലാണ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പിന്റെ തെളി ട വെടുപ്പ് ജയിൽ അധികൃതർ രാജ്കുമാറിനോടൊപ്പം ഉണ്ടായി രുന്ന സഹതടവുകാർ ഡോക്ടർമാർ എന്നിവരുടെ മൊഴി രേഖ പ്പെടുത്തും അതേസമയം കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോ ഗമിക്കുന്നുണ്ട്

കോഴിക്കോട് താമരശ്ശേരി ചുരം അഞ്ചാം വളവിന് സമീപം രാവിലെ കെഎസ്ആർടിസി ബ്രസ്സുകൾ കൂട്ടിയിടിച്ച് പത്തോളം പേർക്ക് നിസ്സാര പരിക്കേറ്റു അപകടത്തെ തുടർന്ന് ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു ആർ എസ് എസ് ്നേതാവ് വത്സൻ തില്ലങ്കേരിയുടെ കാർ രാവിലെ തലശ്ശേരി ആറാം മൈലിൽ അപകടത്തിൽപ്പെട്ടു

ഇവരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

അഞ്ച് ഘട്ടങ്ങളിലായാണ് ജില്ലയിൽ അദാലത്ത് നടത്തുന്നത്

കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി കടത്തുക യായിരുന്ന രണ്ടര കിലോയിലേറെ സ്വർണ്ണ ബിസ്കറ്റുകൾ പിടികൂടി ദോഹയിൽ നിന്നെത്തിയ കോഴിക്കോട് ചാത്തമംഗലം സ്വദേശി മുഹമ്മദ് ഫാസിലിൽ നിന്നാണ് സ്വർണ്ണം പിടിച്ചെടുത്തത് കോഴിക്കോട് കൊയിലാണ്ടി കണയങ്കോട് പുഴയിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി പൂനൂർ കാടാംകൊള്ളിൽ സ്വദേശിനി റീനയുട്ടെ മൃത്രദേഹമാണ് കണ്ടെത്തിയത് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ്ക്കടുത്ത് അമ്മിനിക്കാട്ട് ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു

കാറൽമണ്ണ അരുൺകുമാർ ആണ് മുരിച്ചത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സ്ഥാപക നേതാവും ജനറൽ സെക്രട്ടറിയുമായിരുന്ന ജോർജ്ജ്കുട്ടി കാരേ പറമ്പിലിന്റെ നാലാമത് ചര്മവാർഷികം ഇന്ന് ആചരിക്കും